എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സത്യവും സത്യസന്ധതയുമാണ് വിജയിച്ചതെന്ന് ന്രേന്ദ്രമോദി

എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി

ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപന്നങ്ങൾക്ക് നികുതി വർധി പ്പിച്ചതിൽ ട്രംപ് നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു അതിനിടെ കോബെയിൽ ഇന്ത്യൻ സമൂഹവുമായി സംസാരി ക്കവെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സത്യവും സത്യ സന്ധതയുമാണ് വിജയം നേടിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റിന് വിദേശ ബന്ധങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യാ നാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ജപ്പാനും സംസ്കാരങ്ങളെ പര്യസ്പരം മാനിക്കുന്ന തായി അദ്ദേഹം പറഞ്ഞു

വ്യാപാര വിഷയങ്ങ ളാണ് രണ്ട് ദിവസത്തെ ഉച്ചകോടി പ്രധാനമായും ചർച്ച ചെയ്യുന്ന ത് ഇതോടൊപ്പം ആഗോള സമ്പദ് വ്യവസ്ഥ കാലാവസ്ഥാ വ്യതി യാനം ഇറാന്റെ എണ്ണ കയറ്റുമതി സമുദ്ര മാലിന്യം എന്നിവയും ഉച്ചകോടി ചർച്ച ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിർമാണാനുമതിക്കും നിർമ്മാണം പൂർത്തിയായി ക്സിയറൻസിനും കാത്ത് കിടക്കുന്ന അപേക്ഷകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാരുടെ യോഗം അടുത്ത മാസം ആറിനകം വിളിക്കണ മെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കലക്ടർമാർക്ക് നിർദേശം നൽകി ഈ യോഗത്തിൽ പഞ്ചായത്തുകളിലും മുനി സിപ്പാലിറ്റികളിലും തീർപ്പാക്കാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ ജില്ലാ കലക്ടർമാർ അധ്യക്ഷരായ ഏകജാലക സമിതി യോഗം ചേർന്ന് പരിഹരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദേശിച്ചു ഇതു സംബന്ധിച്ച നടപടി ജൂലൈ മാസം തന്നെ പൂർത്തിയാക്കാനും അദ്ദേഹം ആവ ശൃപ്പെട്ടു ജില്ലാ കലക്ടർമാരുമായി വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

സമൂഹത്തിലെ സേവകരാണ് എന്നു കാര്യംവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഒരു ഘട്ടത്തിലും മറക്കരുത് എന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തുനിന്ന് സിവിൽ സർവീസ് ജേതാക്കളായ സിവിൽ സർവീസ് അക്കാദമി വിദ്യാർത്ഥികളെ അനു മോദിക്കുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാ രിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് രക്ഷ പ്പെട്ട രണ്ട് വനിതാ തടവുകാർ പൊലീസ് പിടിയിലായി

പി അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് മോഷണ കേസിൽ പ്രതികളായ് ഇവർ ജയിലിന് പിറ കിൽ മാലിന്യമിടുന്ന സ്ഥലം വഴി ചൊവ്വാഴ്ച വൈകീട്ടാണ് തടവ് ചാടിയത്

ഇവർക്കായി ഇന്നലെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്യു മെന്ന് പൊലീസ് അറിയിച്ചു കണ്ണൂർ വിയ്യൂർ സെൻട്രൽ ജയിലുകളിൽ തടവുകാരുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തെകുറിച്ച് അന്വേഷണം വേണ മെന്ന് ജയിൽ മേധാവി ഋഷിരാജ് സിങ് ആവശ്യപ്പെട്ടു ഇക്കാര്യ ത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകിയ കത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ജയിലുകളിൽ നടന്ന മിന്നൽ പരിശോധ നയെ കുറിച്ച് ഗവൺമെന്റിന് വിശദമായ റിപ്പോർട്ട് നൽകുന്നതിന്റെ മുന്നോടിയായാണ് നടപടി അന്തർസംസ്ഥാന സ്വകാര്യ കോൺട്രാക്ട് കാര്യേജ് ബസ്സുകളു ടെ സമരം അഞ്ചാം ദിവസത്തേക്ക് കടന്നു യാത്രക്കാർക്കായി കെ

സി അധിക സർവീസുകൾ നടത്തും

കൂടാതെ ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഏതുസമയവും യാത്രക്കാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സർവീസുകൾ നടത്താനായി അഞ്ച് ബ സ്സുകൾ ബാംഗ്ലൂരിൽ സജ്ജമാക്കിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾ കുടുംബ വരു മാന സർടിഫിക്കറ്റ് നൽകണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി വിദ്യാഭ്യാസ ആനുകൂല്യത്തിന്റെ നടപടിക്രമം ലഘൂകരിക്കണമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്ര വർഗ കമ്മീഷൻ നിർദേശിച്ചു

കുടുംബത്തിന്റെ വരു മാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നൽകുന്നത് എന്നാൽ ഇപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരുമാന സർടിഫിക്കറ്റ് നൽകണമെന്ന് നിഷ്കർഷി ക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കമ്മീഷൻ നിർദേശം നൽകിയത്

ഒരു മത്സരം പോലും തോൽക്കാത്ത ഇന്ത്യക്ക് അടുത്ത മൂന്ന് മത്സരങ്ങളിൽ ഒരു ജയം കൂടി നേടാനായാൽ സെമിയിൽ പ്രവേശിക്കാനാകും

മറ്റന്നാൾ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം ഇന്ന് ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയെ നേരിടും കേരളത്തിലെ ആദ്യത്തെ ഒളിമ്പിക്സ് മെഡ്ൽ ജേതാവ് മാനുവൽ ഫ്രെഡറിക്കിന് ഗവൺമെന്റ് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താ ക്കോൽദാനം നാളെ വൈകുന്നേരം മന്ത്രി ഇ പി ജയരാജൻ നിർവ ഹിക്കും

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ പടുകുഴിൽ വീണ സി

ഐ എം ചരിത്രപരമായ പതനത്തിലേയ്ക്ക് നീങ്ങുകയാ ണെന്ന് കെ

എഫ് മഞ്ചേശ്വരം മണ്ഡലം നേതൃയോഗം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

എം സംസ്ഥാന സെക്രട്ടരി കോടിയേരി ബാലകൃ ഷ്ണന്റെ മക്കളുടെ സാമ്പത്തിക ബാധ്യതയ്ക്ക് സംസ്ഥാനം വില കൊടുക്കേണ്ട സാഹചര്യമാണ് നിലവിലെന്ന് ബി

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാസു രേന്ദ്രൻ പറഞ്ഞു

പി കാസർകോട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഒരു സ്ത്രീ ജീവനാംശം ആവശ്യപ്പെട്ട് നൽകിയ പരാതി യിൽ നീതി നടപ്പാക്കുന്നതിന് പകരം പ്രതിയെ സംരക്ഷിച്ച് കേസ് അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് അവർ കുറ്റപ്പെടു ത്തി തിരുവനന്തപുരം ജില്ലാ പൊലീസ് സഹകരണ സംഘം തെരഞ്ഞെ ടുപ്പിൽ യു

എഫ് അനുകൂല പാനൽ എല്ലാ സ്റ്റീറ്റിലും വിജയി ച്ചു നിലവിലെ പൊലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസി ഡന്റ് ടി

കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന കേസിൽ ജലന്ധർ രൂപതാ മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കിലിനെതിരായ വാദം കേൾക്കുന്നത് പാ ലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അടുത്തമാസം ഒമ്പതിലേക്ക് മാറ്റി പ്രതിക്ക് കുറ്റപത്രം നൽകിയതിൽ പിശകുണ്ടെന്ന പ്രതിഭാഗ ത്തിന്റെ പരാതി പരിഗണിച്ചാണ് കോടതി നടപടി

ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഭരണകാര്യങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചും പഠിക്കു ന്നതിനായി മഹാരാഷ്ട്രയിൽ നിന്ന് സംഘം കണ്ണൂരിലെത്തി

വിവിധ മേഖലകളിൽ ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന പ്രവർ ത്തനങ്ങളെ സംഘം അഭിനന്ദിച്ചു അരലക്ഷം രൂപ കൈക്കുലി വാങ്ങാൻ ശ്രമിച്ചെന്ന പരാതിയിൽ എം പ്പോയീസ് പ്രോവിഡന്റ് ഫണ്ട് കോഴിക്കോട് മേഖല എൻഫോഴ് സ്മെന്റ് ഓഫീസർ പ്രേമകുമാരനെ സി

ബി ഐ കൊച്ചി യൂണിറ്റിലെ അഴിമതി വിരുദ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ എരഞ്ഞിപ്പാലത്തെ ഓഫീസിൽ നിന്ന് പിടികൂടിയത്

പ്രളയം കനത്തിനാശം വിതച്ച ജില്ലയി ലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കിടെയാണ് ഈ നേട്ടം കൈ വരിച്ചത് ഇടുക്കി ജില്ലയിൽ പ്രളയാനന്തര പുനർ നിർമ്മാണങ്ങൾക്ക് കേര ള ഖത്തർ റെഡ്ക്രോസ് സൊസൈറ്റികളുടെ പുതിയ പദ്ധതി ഇതു സംബന്ധിച്ച് റെഡ്ക്രോസ് സൊസൈറ്റി പ്രതിനിധികൾ ജില്ലാ കല ക്ടർ എച്ച് ദിനേശുമായി ചർച്ച നടത്തി ഭവനങ്ങളുടെ പുനർനിർമ്മാ ണം ഉപജീവന സഹായം ആരോഗ്യ സംരക്ഷണം ദുരന്ത സാധ്യത കുറയ്ക്കൽ എന്നിവ സംയുക്തമായി നടപ്പാക്കാനാണ് ലക്ഷ്യമിടു ന്നത്

കണ്ണൂർ ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓ ഫീസർ അറിയിച്ചു ഇരിട്ടി മേഖലയിലാണ് ഡെങ്കി പനി റിപ്പോർട്ട് ചെയ്തത് ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ടു വളരാൻ സാധ്യത യുള്ള സാഹചരൃം ഒഴിവാക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു മഴയുടെ കുറവിനെ തുടർന്ന് ഈ വർഷം വയനാട് ജില്ലയിൽ ഡെങ്കിപ്പനി വർധിക്കാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണ മെന്നും ആരോഗ്യ വകുപ്പ് നിർദേശം നൽകി

കോഴിക്കോട് അറപ്പുഴ പാലത്തിന് സമീപം പുഴയിൽ കാണാതാ യ വിദ്യാർഥിനിയുടെ മൃതദേഹം കണ്ടെത്തി പന്തീരാങ്കാവ് ചെറു കാട് കുന്നുമ്മൽ മനീഷയുടെ മൃതദേഹമാണ് ഫയർഫോഴ്സ് സ് കൂബ സംഘം കണ്ടെടുത്തത് തെരച്ചിലിനിടയിൽ ഒരു ഫയർമാന് പരുക്കേറ്റു സ്കൂൾ ഉച്ചഭക്ഷണ വിതരണത്തിൽ നിർദേശങ്ങൾ പാലിച്ചില്ലെ ങ്കിൽ കർശന നടപടിയെടുക്കാൻ കോഴിക്കോട് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു കൊയിലാണ്ടി കീഴ്പ്പയ്യൂർ വെസ്റ്റ് എൽ പി സ്കൂളിൽ ഭക്ഷ്യ വിഷബാധയ്ക്കിടയായ സാഹചര്യത്തിൽ ഡിസാസ്റ്റർ മാനേ ജ്മെന്റ് ഡെപ്യൂട്ടി കലക്ടർ ഷാമിൻ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ ചേർന്ന ആരോഗ്യം ഭക്ഷ്യസുരക്ഷ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗ സ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം